സൈന നെഹ്വാളും പി

സിന്ധുവും രണ്ടാം റൌണ്ടിൽ

ബിഹാറിലെ സമസ്തിപൂർ മഹാരാഷ്ട്രയിലെ സതാരാ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് നടന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ

തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക

സി

കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ നടുക്കുക

രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം വിശദാംശങ്ങളുമായി സുരേഷ്

മുന്നണികളും ജനങ്ങളും ഏറെ ആകാംക്ഷയോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നത് വട്ടിയൂർക്കാവ് കോന്നി അരൂർ എറണാകുളം മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത് വോട്ടിംഗ് യന്ത്രങ്ങളിലേതിനു പുറമെ ഓരോ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിലെ വി വി പാറ്റ് സ്ളിപ്പുകളും നറുക്കെടുത്ത് എണ്ണും

വി പാറ്റ് സ്തിപ്പുകൾ എണ്ണുന്നത് പ്രത്യേക സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കും

വട്ടിയൂർക്കാവിലേത് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കന്ററി സ്കൂളിലും കോന്നിയിലേത് എലിയറയ്ക്കൽ അമൃത വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിലും അരൂരിലേത് ചേർത്തല എൻ

എസ് കോളേജിലും എറണാകുളത്ത് മഹാരാജാസ് കോളേജിലും മഞ്ചേശ്വരത്ത് ഗവൺമെന്റ് എച്ച്

ആദ്യഫലസൂചനകൾ ഒരു മണിക്കൂറിനകം അറിയാം ഉച്ചയ്ക്കു ശേഷമേ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂവെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു

ഗോൾഡ് ചാനലിലും മറ്റ് ഫ്രീക്വൻസികളിലും പ്രക്ഷേപണം ലഭ്യമാകും

രാവിലെ ഒൻപത്ത് മുക്കൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് വോട്ടെടുപ്പ്

പോളിംഗ് പൂർത്തിയായാൽ ഉടൻ വോട്ടെണ്ണൂർ ആര്രംഭിക്കും ഇന്ന് രാത്രിയോടെ ഫലമറിയാനാവും വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

പയറുവർഗ്ഗങ്ങളുടേയും കടുകെണ്ണയുടേയും സൂര്യകാന്തി എണ്ണയുടേയും ബാർലിയുടേയും കുറഞ്ഞ താങ്ങുവിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്

ഈ കോളനികളിലെ താമസക്കാർക്ക് ഉടമസ്ഥാവകാശം അനുവദിക്കുന്ന തരത്തിലാണ് ക്രമവൽക്കരണം സാധ്യമാക്കിയിട്ടുള്ളതെന്ന് കേന്ദ്ര നഗരകാര്യ മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം

രണ്ട് കമ്പനികളും അടച്ചു പൂട്ടാനോ ഓഹരി വിറ്റഴിക്കാനോ ഉദ്ദേശ്യമില്ലെന്നും കേന്ദ്ര ഗവൺമെന്റ് വൃക്തമാക്കി

എൽ ഉം ലയിപ്പിക്കാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ തത്തിൽ അംഗീകാരം നൽകിയതായി കേന്ദ്ര് വാർത്താവിനിമയ മന്ത്രി രവിശങ്കർ പ്ര്യ്സാദ് മാധ്യമങ്ങളെ അറിയിച്ചു

സാമ്പത്തികകാര്യങ്ങൾക്കുള്ള മന്ത്രിതല സമിതിയുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം

പുതിയ കമ്പനികൾ മൂന്നു വർഷത്തിനകം സി

ജി എൽ എൻ

ഇത്തരം ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ അഞ്ചുശതമാനം ഗ്രാമീണ മേഖലകളിലായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

അൻസാർ ഗസ്വാദ് അൽ ഹിന്ദ് എന്ന ഭീകരസംഘടനയുടെ സ്ഥാപകനായ സാകിർ മൂസയുടെ പിൻഗാമിയാണ് ഇയാളെന്നും പൊലീസ് മേധാവി ദിൽബാഗ് സിംഗ് അറിയിച്ചു അൽ ഖയ്ദയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണ് എ ജി എച്ച് സാകിർ മൂസ ഈ വർഷം കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ലെൽഹാരി ഭീകരസംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തതെന്നും പൊലീസ് മേധാവി പറഞ്ഞു അൻസാർ ഗസ്വാദ് അൽ ഹിന്ദിനെ കാശ്മീരിൽ നിന്നും തുടച്ചു നീക്കിയതായും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു

ഇ ഗവേണൻസ് ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സേവനങ്ങൾ നടത്തിയിരുന്ന സ്ഥാപനത്തിലാണ് റെയ്ഡ് നടന്നതെന്ന് കേശ്ശു പ്രിത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു നികുതി വെട്ടിപ്പ് ഹവാലാ ഇടപ്പാട്ടുക്ട്ർ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ സംബന്ധിച്ചു

ഇന്ത്യയിലെ അക്ഷർധാം സ്വാമി നാരായൺ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുന്ന കേന്ദ്രമായി സായിനോ സാത്തോയെ വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സന്തോഷവും സമാധാനവും തേടുന്ന ഇന്നത്തെ ലോകത്തിൽ അതിനുള്ള ശരിയായ ഉത്തരമാണ് സായിനോ സാത്തോയെന്ന് രാഷ്ട്രപതി പറഞ്ഞു വൈകിട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബേ അത്താഴവിരുന്ന് ഒരുക്കി

ഇന്നലെ ധ്രുവ് പദ്ധതിയുടെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചതാണ് ധ്രുവ് ധ്രുവിൽ നിന്നുള്ള താരങ്ങൾ ഭാവിയിൽ അവർ തെരഞ്ഞെടുക്കുന്ന മേഖലയിൽ പ്രചോദനമേകുന്നവരായി ഉയരുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

വി സിന്ധുവും പാരീസിൽ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ രണ്ടാം റൌണ്ടിൽ കടന്നു

ഇന്നലെ നടന്ന മത്സരത്തിൽ സ്സൈന്റ് ഹ്യോങ്കോങ്ങിന്റെ ഞ്യാൻ യി ചെങ്ങിനെയാണ് തോൽപ്പിച്ചത്

ചൊവ്വാഴ്ചത്തെ മത്സരത്തിൽ സിന്ധു കാനഡ്യുടെ മിഷേലി ലീയേയാണ് തോൽപ്പിച്ചത്

പുരുപ്പ് സിംഗിൾസിൽ ഇന്ത്യയുടെ കെ ശ്രീകാന്ത് പി കശ്യപ് സമീർ വർമ്മ എന്നിവ്ർ ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി ശ്രീകാന്ത് തായ്വാൻതാരം ചൌ ഡിയാൻ ചെന്നിനോടും സമീർ വർമ്മ ജപ്പാനോടും കശ്യപ് ഹോങ്കോംഗിന്റെ ആംഗസ് ലോങ്ങിനോടുമാണ് പരാജയപ്പെട്ടത്

ശ്രീധരന്റെ അഭിപ്രായം സ്വീകരിക്കാനാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത്